തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ചതിന്റെ സ്മരണ പുതുക്കി ഇന്ന് ദീപാവലി

ബിഹാറിൽ പുതിയ സർക്കാർ രൂപീക്കുർണത്തിന് മുന്നോടി യായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ രീജീവെച്ചു

രാജ്യത്ത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം അഞ്ച് ലക്ഷത്തിൽ താഴെയായി തുടരുന്നു

ദീപാവലി ആഘോഷിക്കുന്ന എല്ലാപേർക്കും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമടക്കമുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു

എന്നിരുന്നാലും സന്തോഷത്തിന്റെയും പങ്കുവെക്കലിന്റെയും മാധുരൃം പകർന്നുകൊണ്ട് നന്മയുടെ ഉത്സവം ആഘോഷിക്കു കയാണ് രാജ്യം പ്ലാവപ്പെട്ടവർക്ക് നന്മ യുടെ വെളിച്ചും പകർന്നു നൽകുന്ന് തിർത്തിൽ പങ്കുവെയ്ക്കലി ന്റേതാകണം ദീപാവലി ആഘോഷങ്ങള്ളെന്ന് രാഷ്ടപതി രാംനാഥ് കോവിന്ദ് ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി ദുഷ്ടശക്തികളെ കീഴടക്കാനും സമൂഹത്തിൽ സ്രൂഹോദര്യവും നന്മയും പുലർത്താനുമാണ് ദീപ്പാവലി നമ്മെ ഓർമിപ്പിക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി എം

പ്രാദേശിക ഉത്പന്ന ങ്ങൾ വാങ്ങി ദീപാവലി ആഘോഷി ക്കാനും സൈനികർക്കുള്ള ആദരസൂചകമായി ദീപങ്ങൾ പ്രകാശിപ്പിക്കാനും ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു ലോകമെ മ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദീപാവലി ആശംസകൾ നേർന്നു മനുഷ്യത്തിന്റെ പ്രകാശ വേളയാക്കി ദീപാവലിയെ മാറ്റാൻ സാധിക്കട്ടെയെന്ന് ആശംസാ സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇ യിലും എൻ

തിങ്കളാഴ്ച ഓഹരി വിപണികൾക്ക് അവധിയായിരിക്കും

എസ് സമ്മേളനത്തിൽ വിദേശകാരു മന്ത്രി എസ്

എസ് ്ലെ ശ്രീക്തിപ്പെടുത്താനുള്ള നടപടികൾ തുടങ്ങിയവ യോഗം ച്ർച്ച് ചെയ്യും

ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി കൃഷിക്ക് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്ന് യോഗത്തിൽ മന്ത്രിമാർ വ്യക്തമാക്കി പുതിയ കാർഷിക നിയമങ്ങൾ കർഷകർക്ക് വിപണി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്യം നൽകുന്നതിനൊപ്പം കർഷകതാത്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് മന്ത്രിമാർ കർഷകർക്ക് ഉറപ്പ് നൽകി കർഷകരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു

ബാരാമുള്ള കുപ്വാര ബന്ദിപോര എന്നീ ജില്ലകലിലാണ് യാതൊരു പ്രകോപന വുമില്ലാതെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ബാരാമുള്ളയിലെ ഉറിയിൽ ജനവാസ മേഖലകളിലേക്ക് പാകിസ്ഥാൻ നടത്തിയ മോർട്ടാർ ആക്രമണത്തിൽ മൂന്ന് പ്രദേശവാസികൾ കൊല്ലപ്പെട്ടു നാല് കുർദ്സനാ ജവാന്മാരും ഒരു അതിർത്തി രക്ഷാസേന ഉദ്യോഗസ്മില്ലും വീരമൃത്യു വരിച്ചു അതേസമയം ഇന്ത്യൻ സേന നട്ടത്തിയ് ശക്തമായ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ ്സേനയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായത്യി ്രപതിരോധ വക്താവ് അറിയിച്ചു

നാളെ പറ്റ്നയിൽ ചേരുന്ന എൻ

എ സാമാജികരുടെ യോഗം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം കൈക്കൊള്ളും ഇന്നലെ എൻ

നിതീഷ് കുമാറിന്റെ ജെഡിയു ബിജെപി ഹിന്ദുസ്ഥാനി അവാ മോർച്ചു വികാസ് ശീൽ ഇൻസാൻ പാർട്ടി എന്നിവരുൾപ്പെടുന്ന എൻ

അതിനിടെ വിജയിച്ച ഏക സ്വതന്ത്ര സ്ഥാനാർത്ഥി സുമന്ത് സിങ്ങും എൻ

എ യ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു

വിദേശകാരൃ സഹമന്ത്രി വി

പാർട്ടി ദേശീയ വക്താവ് സാംബിത് പത്രയ്ക്ക് മണിപ്പൂരിന്റെയും ചുമതല ലഭിച്ചു

രാധാകൃഷ്ണനാണ് കേരളത്തിന്റെ ചുമതല

ഒന്നര കോടിയോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് കോഴിക്കോട് എറണാകുളം തൃശൂർ ജില്ലകളിലാണ

ഇന്തൃയു്ടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് രാജ്യം ശിശുദിനമായി ആഘോഷിക്കുന്നത് ഇന്നത്തെ കുട്ടികളാണ് രാജ്യത്തിന്റെ ഭാവി എന്നും അവരാണ് സമൂഹത്തിന്റെ അടിസ്ഥാനമെന്നും നെഹ്റു വിശ്വസിച്ചിരുന്നു

ശിശുദിനത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിവിധ പരിപാടികൾ നടക്കും

പരീക്ഷണാർത്ഥം ഒഡീഷ തീരത്തിനോട് ചേർന്ന ചാന്ദിപ്പൂരിൽ ആളില്ലാ വിമാനത്തെ മിസൈലുപയോഗിച്ച് തകർക്കാൻ കഴിഞ്ഞതായി പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡി ആർ

ഒ ചെയർമാൻ സതീഷ് റെഡ്ഡി തുടങ്ങിയവർ അനുമോദിച്ചു

തിങ്കളാഴ്ച നടന്റെ വസതിയിൽ നടത്തിയ തെരച്ചിലിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ

ദേശീയ അന്തർദേശീയ താൽപരൃങ്ങൾക്കനുസരിച്ച് അനുയോജ്യവും ബഹുജനഹിതവും ആയ തീരുമാനങ്ങളാണ് കൈക്കൊള്ളേണ്ടത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നാഷണൽ ഡിഫൻസ് കോളേജിന്റെ അറുപതാമത്തെ കോഴ്സ് സമാപന ചടങ്ങ് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇത് വഴി പാറപൊട്ടിക്കൽ മൂലമൂണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം കുറക്കാനും ഫ്ലൈ ആഷ് ഫലപ്രദമായി സംസ്കരിക്കാനും സാധിക്കും